കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവ്വീസ് പ്രാഥമിക പരീക്ഷാഫലം പിഎസ് സി പ്രഖ്യാപിച്ചു മെയിൻ പരീക്ഷ നവംബറിൽ

പലിശ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ദുരന്തനിവാരണ നിയമപ്രകാരം സർക്കാരിന് അധികാരമുണ്ട് അതുകൊണ്ടുതന്നെ കേന്ദ്രം നിലപാട് വ്യക്തമാക്കണം എന്നാണ് സുപ്രീംകോടതി ആവശ്യ പ്പെട്ടിരിക്കുന്നത്

എന്നാൽ വായ്പ തിരിച്ചടക്കാൻ ബുദ്ധിമുട്ടുള്ള അക്കൌണ്ടുകൾ കണ്ടെത്തി പലിശ നിരക്ക് കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ആശ്വാസ നടപടികൾ സ്വീകരിക്കുമെന്ന് ്കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജിന്റ്ൽ തുഷാർ മേത്ത കോടതി യിൽ വ്യക്തമാക്കി

നിലവിൽ ഏഴ് ലക്ഷത്തിലേറെ പേരാണ് ചികിത്സയിലുള്ളത്

മെഡിക്കൽ കോളേജുകളും മൂന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും വീഡിയോ ക്കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമുന്ത്രി

കഴിഞ്ഞ കുറച്ചുദിവസങ്ങളായി ന്യൂഡൽഹിയിലെ കോവിഡ് കേസു കളിൽ ചെറിയ വർധനയുണ്ടായതായും അദ്ദേഹം മാധ്യമ ങ്ങളെ അറിയിച്ചു

രാജ്യത്ത് കയറ്റുമതിയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളുടെ വിശദാംശങ്ങളും സൂചികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്

ഗുജറാത്ത് മഹാരാഷ്ട്ര തമിഴ്നാട് എന്ന്യൂീ സംസ്ഥാനങ്ങളാണ് രാജ്യത്ത് കയറ്റുമതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ആദ്യ മൂന്നു സംസ്ഥാനങ്ങൾ

ആത്മനിർഭർ ഭാരത് എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിന് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കയറ്റുമതി കൂടുതൽ വളർച്ച കൈവരിക്കേ ണ്ടതുണ്ടെന്ന വിലയിരുത്തലിലാണ് നിതി ആയോഗ് ഈ സൂചിക പുറത്തിക്കിയത് കയറ്റുമതി മേഖലയിലെ വെല്ലു വിളി കളും അവസരങ്ങളും തിരിച്ചറിയുക സർക്കാർ നയങ്ങളെ കൂടുതൽ പ്രായോഗിക തലത്തിലേക്കെത്തിക്കുക നിലവിലെ ചട്ടക്കൂടുകളെ കൂടുതൽ അനുയോജ്യമാക്കുക എന്നിവയാണ് സൂചികയിലൂടെ ലക്ഷ്യമിടുന്നത് നയം വ്യാപാരാന്തരീക്ഷം കയറ്റുമതി അനുകൂല സാഹചര്യം കയറ്റുമതി വർധന എന്നീ നാലു ഘടകങ്ങളെ അടിസ്ഥാന മാക്കിയാണ് സൂചികക്ക് രൂപം നൽകിയിരിക്കുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇ ഇ മെയിൻ നീറ്റ് പരീക്ഷകൾ മുൻനിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും ഇതിന്റെ ഭാഗമായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം ഗണ്യമായി വർധിപ്പിച്ചു

ഇ ഇ

ഇ ഇ

ഇ ഇ

ഇ ഇ

കൂടുതൽ വിവരങ്ങളുമായ്ട്രി ക്രോൾ അബ്രഹാം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിവിധ ആനുകൂലൃങ്ങൾക്കായി കർഷകരുടെ അപേക്ഷ സ്വീകരിച്ച് നടപടിയെടുക്കുന്നതും ആനുകൂലൃങ്ങൾ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് കൈമാറുന്നതും ഉൾപ്പെടെയുള്ള നടപടികൾ കമ്പ്യൂട്ടർവൽകൃതമാക്കുന്നതാണ് പദ്ധതി

ദുബായിൽ നടക്കുന്ന ഐ

എൽ